സംസ്ഥാനത്ത് വീണ്ടും കേന്ദ്രസംഘം എത്തും

കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപ്പിച്ച ഇന്ധന സെസ് ഇന്നുമുതൽ ന് പ്രാബല്യത്തിൽ

അദാലത്ത് സാന്ത്വന സ്പർശം കണ്ണൂരിലും കോഴിക്കോടും പുരോഗമിക്കുന്നു

ആസൂത്രിത ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ്

എസ്

ഈസ്റ്റ് ബംഗാൾ ബംഗളുരു മത്സരം

രാജ്യത്ത് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് അതേസമയം രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്ന പ്രവണത തുടരുകയാണ്

സംസ്ഥാനത്ത് കോവിഡ് മരണനിരക്ക് കുറവാണെന്ന് ആരോഗൃമന്ത്രി കെ

ഏറ്റവും കൂടുതൽ ആരോഗ്യപ്രവർത്തകർ വാക്സിൻ സ്വീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്

ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്

കണ്ണൂർ ഷിഗെല്ല കണ്ണൂർ ഇരിട്ടിയിൽ ഷിഗെല്ലാ രോഗം റിപ്പോർട്ട് ചെയ്തു

ഇ്തിനനുസൃതമായി എക്സൈസ് തീരുവ കുറച്ചതിനാൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കില്ല അതിനാൽ ഉപഭോക്താക്കൾക്ക് അധികഭാരം ഉണ്ടാവില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം കാർഷിക അടിസ്ഥാന വികസന സെസ് എന്ന പേരിലാണ് ബജറ്റിൽ കേന്ദ്രം ഇന്ധനത്തിന് പുതിയ സെസ് ഏർപ്പെടുത്തിയത്

എക്സൈസ് നികുതി കുറച്ചെങ്കിലും സെസ് ഏർപ്പെടുത്തിയതോടെ വില ഉയർന്ന് നിൽക്കുകയാണ്

കോവിഡ് വാക്സിൻ സൌജന്യമായി ലഭിക്കുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുന്ന നയം ഊർജ്ജിതമാക്കിയതും ജനവിരുദ്ധ നടപടിയാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു

മന്ത്രിമാരായ ഇ

ജയരാജൻ കെ

ശൈലജ രാമചന്ദ്രൻ കടന്നപള്ളി എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത്

പി രാമകൃഷ്ണൻ എ കെ ശശീന്ദ്രൻ കെ

ജില്ലീൽ എന്നിവരാണ് അദാലത്തിൽ പങ്കെടുക്കുന്നത്

കാർഷിക നിയമം പിൻവലിക്കണമെന്ന വിഷയത്തിൽ അടിയന്തരപ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം ബഹളം വച്ചു വിഷയം ശൂന്യവേളയിൽ ഉന്നയിക്കാമെന്ന് രാജ്യസഭാ അദ്ധ്യക്ഷൻ വൃക്തമാക്കിയെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു

രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് ഇന്ന് ലോക്സഭയിലെ മുഖ്യ കാര്യപരിപാടി

എം ബി ജെ

മുസ്തീം വിഭാഗത്തെ മുഴുവൻ മത മൌലികവാദികളായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായും ചെന്നിത്തല പറഞ്ഞു

എമ്മാണ് ജമാ അത്തെ ഇസ്താമിയുമായി ബന്ധമുണ്ടാക്കിയതെന്നും ചെന്നിത്തല കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ജില്ലയുടെ വികസന വിഷയവും അദ്ദേഹം ചർച്ച ചെയ്തു രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള ഐശ്വരിച്ചു യാത്ര ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരൃടനം തുടരുക്യാണ് യാത്ര വൈകുന്നേരം തളിപറമ്പിൽ സമാപ്പിക്കും

അന്വേഷണം വൈകുന്നത് ചോദ്യം ചെയ്ത് കെ മുരളീധരൻ എം

മൂന്ന് മീറ്റർ ഉയരത്തിൽ വെള്ളം സംഭരിക്കാവുന്ന തരത്തിലാണ് ആർ

ബി നിർമ്മാണം

അടുത്ത മാസം മൂന്ന് മുതൽ ഗുരുവായൂർ പുനലൂർ സ്പെഷ്യൽ എക്സ്പ്രസ് സർവ്വീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു

നബാർഡ്ടിന്റെ സഹായത്തോടെ മറയൂർ സർവീസ് സഹകരണ ബാങ്കാണ് പ്ലന്ത് തുടങ്ങിയത്

ഐ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം രാവിലെ തിരുവനന്തപുരത്ത് ആരംഭിച്ചു നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സ്ഥാനാർത്ഥി നിർണ്ണയം തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാണ് നേതൃത്വ യോഗങ്ങൾ ചേരുന്നത്

ബജറ്റ് അവതരണത്തിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും കുറഞ്ഞു

ഈ സീസണിൽ ഒരു ജയം മാത്രം നേടിയ ഒഡീഷ അവസാന സ്ഥാനത്ത് തുടരുന്നു